ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മലപ്പുറം കോഴിക്കോട് ജില്ല കളിലും റെഡ് അലർട്ട് കാലവർഷക്കെടുതി തകർത്ത ഉത്തരകേരളം സാധാരണ നിലയിലേക്ക്

കവളപ്പാറയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിൽ ഗവ സംവിധാനം പാടേ പരാജയപ്പെട്ടതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള സംസ്ഥാനത്തെ പുനഃസ്ഥാപിച്ച ട്രെയിൻഗതാഗതം സാധാ രണ നിലയിലാകാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് റെയിൽവെ അയോധ്യാ തർക്കഭൂമിക്കേസിൽ രാംലല്ലയുടെ വാദം സുപ്രീംകോടതിയിൽ തുടരുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരുമിച്ച് നേരിടാ മെന്നും ഗവൺമെന്റ് ഒപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ മേപ്പാടിയിൽ പറഞ്ഞു

ഗവൺമെന്റ് എന്ന നിലയ്ക്ക് വിവിധ കാര്യങ്ങൾ ദുരിതബാധിത സമയത്ത് ചെയ്യാനുണ്ടെന്നും ആദ്യമായി രക്ഷാപ്രവർത്തനത്തി ലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥലം വീട് കൃഷിഭൂമി എന്നിവ നഷ്ടപ്പെട്ടവരുടെ പ്രശ്ന ങ്ങൾ ഗവൺമെന്റ് പരിഹരിക്കും ജനങ്ങളുടെ കൂടെ ഗവൺമെന്റ് എപ്പോഴും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മേപ്പാടിയിലെ ദുരിതാശാസ ക്യാമ്പിൽ നിന്നും അദ്ദേഹം കൽപ്പ റ്റയിലെ സിവിൽസ്റ്റേഷനിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ തിരിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരായ കടന്ന പ്പള്ളി രാമചന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ എംഎൽഎ സി കെ ശശീ ന്ദ്രൻ ചീഫ് സെക്രട്ടറി ഡിജിപി മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നി വരുമുണ്ട് ഉച്ചക്കുശേഷം മുഖ്യമന്ത്രി മലപ്പുറം ഭൂദാനം ദുരിതാ ശ്വാസ കൃാമ്പിലെത്തി ദുരിതബാധിതരെ കാണുകയും ജനപ്രതി നിധികളുമായി ചർച്ച നടത്തുകയും ചെയ്യും ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇ്ന്ന് ഈ ജില്ലകളിൽ അതി തീവ്ര മഴയുണ്ടാകുമെന്ന വില്യിരുത്തലിനെ തുടർന്നാണ് റെഡ് അലർട്ട് നേരത്തെ സംസ്ഥാനത്ത് ഒരിടത്തും ഇന്ന് റെഡ് അലർട്ടു ണ്ടാവില്ലെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്

കാലവർഷ്ക്കെടുതി തകർത്ത ഉത്തരകേരളം സാധാരണ നില യിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴയുടെ ശക്തി കുറയു കയും വെള്ള്ം ഇറങ്ങിത്തുടങ്ങുകയും ചെയ്തതോടെ ദുരിതാശ്വാസ കൃാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി

വരെ വേഗത്തിൽ കാറ്റടിക്കാനും ഇടിയോടുകൂടിയ മഴ ഉണ്ടാവാനും സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് തെക്കൻജില്ലകളിൽ സാമാന്യം ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നാളെ മലപ്പുറം കോഴി ക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

റസിയോടൊപ്പം ഒഴുക്കിൽ പെട്ട കുടു്ംബാംഗങ്ങളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആലപ്പുഴ മണ്ണ്ഞ്ചേരിയിൽ ഒരാളെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണഞ്ചേരി സ്വദേശി അജിത്കുമാറെന്ന നാരാ യണനാണ് മരിച്ചത് ഇട റോഡിന് ചേർന്ന വെള്ളക്കെട്ടിലാണ് മൃത ദേഹം കണ്ടെത്തിയത് നിലമ്പൂർ കവളപ്പാറയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പി ക്കുന്നതിൽ ഗവൺമെന്റ് സംവിധാനം പാടേ പരാജയപ്പെട്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള കുറ്റപ്പെ ടുത്തി കവളപ്പാറയിലെ ദുരന്തസ്ഥലം നേരിൽകാണാൻ എത്തിയ തായിരുന്നു അദ്ദേഹം വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ കവളപ്പാറയിലെ സ്ഥിതി വൃത്യസ്ഥമാണ്

ദുരന്തമേഖലയിൽ ആദ്യം രക്ഷാ പ്രവർത്തനത്തിന് എത്തിയ സേവാഭാരതിയെ മാറ്റി നിർത്താൻ നിഗൂഢശ്രമം നടക്കുന്നതായി ശ്രീധരൻപിള്ള ആരോപിച്ചു കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ച് മനുഷ്യരെ മനുഷ്യനായി കാണുന്ന സമീ പനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ശ്രീധ രൻപിള്ള ആവശ്യപ്പെട്ടു കുട്ടനാട്ടിലെയും അപ്പർകുട്ടനാട്ടിലെയും ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്

മേഖലയിൽ പമ്പ മാത്രമാണ് കരകവി യാത്തത്

വേമ്പനാട് കായലും കരകവിഞ്ഞു തീരത്തെ നൂറുകണ ക്കിന് വീടുകൾ വെള്ളത്തിലാണ്

അതിലേറെപ്പേർ വെള്ളം കയറിയ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലുമായി കഴിയു കയാണ് കാലവർഷക്കെടുതിയെ തുടർന്ന് ജലദൌർലഭൃം നേരിടുന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭിക്കുന്നതിനായി പൊതുജനങ്ങൾ അതത് പഞ്ചായത്ത് സെക്രട്ടറിയുമായോ വില്ലേജ് ഓഫീസർമാരു മായോ ബന്ധപ്പെട്ണം

കോഴിക്കോട് ജില്ലയിലെ പ്രളയബാധിതരുടെ കിണർവെള്ളം വാട്ടർ അതോറിറ്റിയുടെ മലാപ്പറമ്പ് വടകര വീരഞ്ചേരി ലാബുക ളിൽ സൌജന്യമായി പരിശോധിക്കാമെന്ന് വാട്ടർ അതോറിറ്റി അറി യിച്ചു

എൽ വെള്ളം സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയിലുമാണ് നൽകേണ്ടത്

ഇവർ ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തനമാരംഭിച്ചതായി സപ്ലൈകോ മേഖലാ മാനേജർ അറി യിച്ചു ജലനിരപ്പ് നിയന്ത്രിച്ച് നിർത്തു ന്ന തിന് അരു വിക്കര നെയ്യാർഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു

കൊടിയത്തൂർ കുമാരനല്ലൂർ വില്ലേജുകളുടെ പരിധിയിലാണ് ഈ പ്രതിഭാസം രൂപപ്പെട്ടത് വെട്ടുകല്ലിനടിയിലെ കളിമണ്ണിൽ വെള്ളം താഴോട്ട് ഇറങ്ങാ ത്തതിനെ തുടർന്ന് ഉണ്ട്ാകുന്ന് സമ്മർദ്ദം മൂലമാണ് സോയിൽ പൈപ്പിംഗ് ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും സാധാരണ നിലയിലാകാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് റെയിൽവെ അധികൃതർ അറിയിച്ചു

ചില ട്രെയിനുകൾ ഭാഗി കമായി സർവീസ് നടത്തുന്നുണ്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസും ചില പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കി കോഴിക്കോട് തൃശൂർ പാസ ഞ്ചർ എറണാകുളം കൊല്ലം മെമു കൊല്ലം എറണാകുളം മെമു എറണാകുളം കായംകുളം കായകുളം എറണാകുളം പാസഞ്ചർ എന്നിവയാണ് റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എം ടി രമേശ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന പണമാണ് ഉപയോഗപ്പെടു ത്തുന്നത് നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന പ്രചാരണം ദുരു ദ്ദേശ ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു പണം കൃത്യ മായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം പിന്നീട് പരിശോധി ച്ചാൽ മതി

ലിനുവിന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു അയോധ്യാ തർക്കഭൂമിക്കേസിൽ അഞ്ചാംദിവസത്തെ വാദം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ആരംഭിച്ചു രാംലല്ല വിരാജ്മാൻ വിഭാഗം അഭിഭാഷ്കുന്റെ വാദം കോടതിയിൽ തുടരുകയാണ് ആദ്യമുണ്ടായിരുന്ന രാമക്ഷേത്രത്തിന് മുകളിൽ പിന്നീട് ബാബറി മസ്ജിദ് പണിയുകയായിരുന്നുവെന്ന് അഭിഭാഷ കരായ കെ പരാശരനും സി എസ് വൈദ്യനാഥനും ബെഞ്ചിനെ അറിയിച്ചു

മാധ്യമപ്ര വർത്തകർക്ക് തടസ്സമില്ലാതെ ജോലിചെയ്യാൻ കശ്മീരിലെ നിയന്ത്ര ണങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഹർജി നൽകിയത് സ്പീക്കറുടെ അയോഗൃതാ നടപടിക്കെതിരായ ഹർജികൾ അടി യന്തരമായി പരിഗണിക്കണമെന്ന കർണാടകയിലെ വിമത എംഎൽ എമാരുടെ അപേക്ഷ രജിസ്ട്രാർക്ക് കൈമാറാൻ സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാർക്ക് നിർദേശം നൽകി

മഞ്ചേരി പൊലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കോടികളുടെ ഹൈടെക് സൈബർ സെറ്റപ്പ് കേസിൽ പ്രതികളെ പിടികൂടിയ തിരൂർ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മികച്ച കേസന്വേഷണ മെഡൽ ലഭിച്ചു

ഹൈദ്രബാദ് ഡൽഹി മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങ ളിലെത്തി അതി സാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വൻ തുകയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയവരാണ് പിട്ടിയിലായ്ത് നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ പ്രതിയായ എസ്ഐ സാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു